പാരമ്പര്യ അറിവ് ആധുനിക കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പികസിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ജാർനഗർ ജയ്പൂർ എന്നിവിടങ്ങളിലെ ആയുർവേദ് ഗ്വേഷണ കേന്ദ്രങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിനു സ്മർപ്പിച്ചു

രാജസ്ഥാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ സംസാരിച്ചു

ധന്വന്തരി ദേവൻ ഏവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും സൌഭാഗ്യവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്നും അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു

ഉംഫുൻ ചുഴലിക്കാറ്റ് നാശനഷ്ടം വിതച്ച പശ്ചിമ ബംഗാൾ ഒഡിഷ നിസർഗ ് ചുഴലിക്കാട് ബാധിച്ച മഹാരാഷ്ട്ര വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും നാശനഷ്ടം വിതച്ച കർണാടക മധ്യപ്രദേശ് സിക്കിം ടി എന്നീ സംസ്ഥാനങ്ങൾക്കാണ് സഹായം

ഇന്ത്യയെ കൃശക്തവും സ്ഥയംപര്യാപ്ത വും ആക്കുന്ന വിവിധ പ്ര്യപ്സായിക മേഖലകൾക്ക് ഉള്ള നിരവധി പദ്ധതികളൂം ആത്മ നിർഭർ ഭാരത് അഭിയാൻ പ്രകാരമുള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അവർ അറിയിച്ചു

നേരത്തെ രോഗിക്കു തിരിച്ചറിയാനും പെട്ടെന്ന് തന്നെ ഐസൊലേഷനിലക്ക് മാറ്റാനും സമയബന്ധിതമായി മികച്ച പ്രചികിത്സ ഉറപ്പുവരുത്താനും സമഗ്രമായ പരിശോധനകൾ സഹായിക്കും ഇതിലൂടെ മരണനിരക്ക് കുറക്കാനും രോഗമുക്തി നിരക്ക് വർധിപ്പിക്കാനും കഴിയുമെന്നും ആരോഗ്യമന്ത്രാലയം കൂട്ടിച്ചേർത്തു

സി എം

സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം പേർ ചികിത്സയിൽ കഴിയുന്നത്

കേരളം ദൽഹി പശ്ചിമ ബംഗാൾ കർണാടുക തുടങ്ങിയവയാണ് രോഗബാധിതരുടെ എണ്ണം വളരെയധികമുള്ള മറ്റു സംസ്ഥാനങ്ങൾ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാമതും ബ്രസീൽ മൂന്നാമതുമാണ്

എ യോഗം ഇന്ന്

ജെ പി ജെ

യു ഹിന്ദുസ്ഥാനി അവാം മോർച്ച വികാസ് ശീൽ ഇൻസാൻ പാർട്ടികൾ ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച എല്ലാ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച പ്രെയ്യുമെന്ന് ജെഡിയു നേതാവ് നിതീഷ് കുമാർ അറിയിച്ചു്

ഇന്നലെ നിയുക്ത ജെഡിയു എം എൽ എ മാരുടെ യോഗം പട്നയിൽ നടന്നിരുന്നു